മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിന് സമീപമുള്ള റെയിൽവേ നടപ്പാലം തകർന്ന് ആറു മരണം

ബ്രക്സിറ്റ് ഉടമ്പടിയിൽട്രഅന്തിമ തീരുമാനം വൈകിപ്പിക്കണമെന്ന് പ്രിആ്വശ്യപ്പെട്ട് ബ്രിട്ടീഷ് പാർലമെന്റ്

വിഭാഗം സിംഗിൾസ് സെമിയിൽ ഇന്ന് ഇന്ത്യയുടെ ലക്ഷ്യാസെൻ കളിക്കും

ദേശീയ ദുരന്തനിവാരണ സേന സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു

കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി സെൻട്രൽ റെയിൽവെ ബ്രിസാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു

അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ഡസ്ക് ആകാശവാണി

ഈ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് എം എൽ എ മാർ രാജിവച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രാജി വച്ച ഇവർ ഭരണകക്ഷിയായ ബി ജെ പിയിൽ ചേർന്നു

എസ് ഐ

എസ് ഐ ആർ

തെരഞ്ഞെടുപ്പിൽ ഒരു പിഴവും ഉണ്ടാകാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ നിരീക്ഷകരെ ഓർമ്മിപ്പിച്ചു സ്വതന്ത്രവും സുതാര്യവും ധാർമ്മികവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് കമ്മീഷന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു

ഡി പി മറ്റ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക നിരീക്ഷക സംഘത്തെ കണ്ടു ചർച്ച നടത്തി സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച

പ്രത്യേക നിരീക്ഷക സംഘവും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലും ചർച്ചകൾ നടന്നു

ദാമോദർ റൌട്ട് ഇന്നലെ ബി ജെ പിയിൽ ചേർന്നു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി നേതാക്കളായ ധർമ്മേന്ദ്ര പ്രധാൻ അരുൺ സിങ് എന്നിവരുടെ സാന്നിദ്ധ്യത്തിലായിരുന്നു ശ്രീ

നേരത്തെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ഉറ്റ സഹായിയായിരുന്ന ശ്രീ

സംസ്ഥാക്ത്ത് ഒരു ദിവസത്തെ സന്ദർശന ത്തിനെത്തിയ ശ്രീ രാഹുൽ ജന്നലെ വൈകിട്ട് കോഴിക്കോട് കടപ്പു റത്ത് ജനമഹാറാലിയെ ഏഅഭീസംബോധന ചെയ്യവേ കോൺഗ്രസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെവിയോർക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെന്നും ജനങ്ങൾക്കപ്പുറം പാർട്ടിക്ക് മറ്റൊന്നുമില്ലെന്നും അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി തന്റെ മനസ്സിലുള്ളത് മാത്രം പറയേണ്ട ആളല്ലെന്നും മറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ളത് കൂടി കേൾക്കണമെന്നും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു

അഭിഭാഷകനായ അശ്ചിനി കുമാറാണ് ഹർജി ഫയൽ ചെയ്തത്

സി

ചടങ്ങിൽ പത്ത്മൂത് ബൈനിയൽ നാഷണൽ ഗ്രാസ്റൂട്ട് ഇന്നവേഷൻ അവാർഡ് രീഷ്ട്രിക്കുപതി വിതരണം ചെയ്യും

രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രത്യേക അനുമോദന ചടങ്ങിലാണ് ഗാലൻട്രി അവാർഡുകളും പ്രത്യേക അംഗീകാരങ്ങളും രാഷ്ട്രപതി വിതരണം ചെയ്തത്

എന്നാൽ ഈ കാലയളവിൽ കരാർ സംബന്ധിച്ച് ഹിതപരിശോധന വേണമെന്ന ഭേദഗതി അംഗങ്ങൾ തള്ളിക്കളഞ്ഞു

ഇതുവഴി കരാറിൽ സമവായം ഉണ്ടാക്കാൻ ബ്രിട്ടന് വേണ്ടിവന്നാൽ കരാർ ദീർഘനാളത്തേക്ക് നീട്ടാനും കഴിയുമെന്ന് യൂറോപ്യൻ യൂണിയൻ തലവൻ ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെയാണ് പ്രത്യേക ജഡ്ജിന് മുൻപാകെ ഏജൻസി ഹർജി നൽകിയത് ഇടപാടുമായി ബന്ധപെട്ട ക്രിമിനൽ ഗൂഡാലോചന പൂർണമായും കണ്ടെത്തുന്നതിന് തൽവാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടതുണ്ടെന്ന് സ്പെഷ്യൽ പബ്ലിക്ക് പ്രോസിക്യൂട്ടർമാർ കോടതിയെ അറിയിച്ചു എയർ ഇന്ത്യക്ക് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് വിദേശകമ്പനിക്ക് അനുകൂലമായി ഇടപെടൽ നടത്തിയതായുള്ള മറ്റൊരു കേസിൽ തൽവാർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്

സിസി ഐ യുടെ ഭരണപരമായ തർക്കങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന അഭിഭാഷകൻ വി

നരസിംഹയെ സുപ്രീംകോടതി മധ്യസ്ഥനായി നിയമിച്ചു തർക്കവിഷയങ്ങളിൽ ഉന്നത നീതി പീഠത്തെ സഹായിക്കുന്ന അമിക്കസ് ക്യൂറി ആയിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുക സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഡി

ജയിൻ ബി സി സി ഐയുടെ ഓബുഡ്മാനായി ചുമതലയേറ്റതായി ശ്രീ നരസിംഹ ഇന്നലെ കോടതിയെ അറിയിച്ചു രാജ്യത്തെ വിവിധ ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിലെ തർക്കങ്ങളും പരിശോധനക്ക് വിധേയമാക്കണമെന്ന് സുപ്രീംകോടതി ശ്രീ നരസിംഹയോടാവശ്യപ്പെട്ടു

ചൌളയെ ഇന്ത്യയ്ക്ക് ക്കൈമീറ്റാൻ യുകെ ആഭ്യന്തര സെക്രട്ടറി സജീദ് ജാവിദ് കഴിഞ്ഞമാ്സ്ക് അനുമതി നൽകിയിരുന്നു

ഈ സമയപ്പരിയിക്കുള്ളിൽ ചൌള അപേക്ഷ നൽകിയതായി യുകെ ആഭ്യത്ത് ഓഫീസ് അറിയിച്ചു

ഫൈനൽ നാളെ നടക്കും

കഴിഞ്ഞ വർഷം നവംബറിൽ ജർമ്മനിയിൽ നടന്ന ലോകകപ്പിൽ ദീപ വെങ്കലമെഡൽ നേടിയിരുന്നു